ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അനുസ്മരണാർത്ഥം നാണയം പ്രധാനമന്ത്രി രൂപ പുറത്തിറക്കും

കോവിഡ് പരിശോധനാ സാങ്കേതിക വിദ്യകൾ സമ്പർക്കം കണ്ടെത്തൽ മരുന്നും ചികിത്സയും തുടങ്ങിയ വിഷയങ്ങളിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ കോവിഡ് പരിശോധനയും സെറോ സർവ്വേയും ഇനിയും ഉയർത്തണമെന്ന് നരേന്ദ്രമോദി നിർദേശിച്ചു ചിലവു കുറഞ്ഞതും വേഗത്തിൽ ഫലം കിട്ടുന്നതുമായി പരിശോധനാ രീതികൾ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോവിഡിനെതിരെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലെ മരുന്നുകളുടെ കാര്യക്ഷമത ശാസ്ത്രീയമായി പരിശോധിക്കാൻ കൃത്യമായ പ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനും പ്രധാനമന്ത്രി നിർദേശിച്ചു കോവിഡ് ക പരിശോധനയിലെ ചിലവു കുറക്കാനും വാക്സിനുകളും മരുന്നുകളും കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കാനും ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു കേന്ദ്ര മന്ത്രി ഡോ ഹർഷവർദ്ധൻ നീതി ആയോഗ് അംഗം വി

പോൾ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫ

വിജയരാഘവൻ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു

രണ്ടേമുക്കാൽ ലക്ഷത്തോളം പേർ നിരീക്ഷണത്തിലുണ്ട്

രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നിർദേശം ബാധകമാണ്

ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും രുര ഇന്ന് ലോക ഭക്ഷ്യദിനം

ലോകത്തെ എല്ലാ വിഭാഗങ്ങൾക്കും ഭക്ഷണമുറപ്പാക്കാനും ദാരിദ്ര്യത്തിനെതിരെ ആഗോള ഐക്യദാർഢ്യം രൂപപ്പെടുത്താനുമാണ് ഭക്ഷ്യദിനം ആചരിക്കുന്നത്

കൃഷിക്കും പോഷകാഹാര ലഭ്യതക്കും ഗവൺമെന്റ് നൽകുന്ന ഉയർന്ന പരിഗണനയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്

ഷാർജയിൽ അവസാന പന്തിലാണ് പഞ്ചാബിന്റെ ഉജ്ജ്വല വിജയം ഇന്ന് വൈകീട്ട് കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ അബുദാബിയിൽ നേരിടും

വൈകീട്ട് മൂന്നിന് സംസ്ഥാനതല സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

രും കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ പൊലീസുകാരുടെ പാസിങ്ങ് ഔട്ട് പരേഡ് രാവിലെ മാങ്ങാട്ടുപറമ്പ് കെ എ

മലപ്പുറം എം എസ്

രുഭ കേരള ബാങ്ക് ജീവനക്കാരുടെ കേഡർ സംയോജനം പൂർത്തീകരിച്ചതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

രും കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഇടതു മുന്നണി പ്രവേശത്തെ തുടർന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ ചേരികളിൽ തിരക്കിട്ട കൂടിയാലോചനകൾ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിൻെറ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് മുഖ്യ അജണ്ട

മുന്നണി യോഗത്തിനു മുൻപ് ഇതേപറ്റി പാർട്ടിക്കകത്തു ചർച്ച വേണമെന്നു സിപിഐ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എൽഡിഎഫ് യോഗം മാറ്റുകയായിരുന്നു

എൻസിപി അടിന്തര നേതൃയോഗവും ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട് രുര സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തലശ്ശേരി ഉപജില്ലാ ഓഫീസ് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ആറളം ഫാമിലെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ഇരിട്ടിയിലെ മിനി സൂപ്പർമാർക്കറ്റും മുഖ്യമന്ത്രി ഓൺലൈനിൽ തുറന്നുകൊടുക്കും

രാജ്യത്തെ ആദ്യ ക്രിമിനൽ കോടതികളിൽ ഒന്നാണ് തലശേരി കോടതി

കൊല്ലം കരുനാഗപ്പള്ളി വെറ്റിനറി പോളിക്ലീനിക്ക് അങ്കണത്തിലാണ് സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ്

രംഭ നീരൊഴുക്ക് കൂടിയാൽ തൃശൂർ ചിമ്മിനി ഡാമിന്റെ സ്പിൽവെ ഷട്ടറുകൾ തുറക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി